ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു

ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ന് നാല് വിമാനങ്ങളെത്തും ജർമ്മനിയിൽ നിന്ന് അടുത്തയാഴ്ച വിമാനങ്ങൾ

പുനരധിവാസപ്രവർത്തനങ്ങൾ തുടരുകയാണ് രണ്ട് ദശാബ്ദത്തിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണിത് ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ തകർന്ന് മരങ്ങൾ കടപുഴകുകയും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നാശനഷ്ടമുണ്ടാകുകയും ചെയ്തു

ഇതിലൂടെ ആഭ്യന്തര വിമാന യാത്രക്കുള്ള നിരോധനം മന്ത്രാലയം നീക്കി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും വ്യോമഗതാഗതവും സംബന്ധിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

പ്രത്യേക ട്രെയിനുകൾക്ക് തത്കാൽ ടിക്കറ്റ് ഉണ്ടാവില്ല ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ ബോർഡ് പ്രസിദ്ധീകരിച്ചു

മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിലും റിസർവേഷൻ കൌണ്ടറുകളിലും ടിക്കറ്റ് ലഭിക്കില്ല

എല്ലാ യാത്രക്കാരും ആരോഗ്യസേതു ആപ്പ് ഡൌൺ ലോഡ് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ്ഡസ്ക് ആകാശവാണി

ശ്രമിക് ട്രെയിനുകൾ ഓടി തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിനനിരക്കാണിത്

ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ

ദിവ്യാംഗർക്കും ഈ ഇളവ് ബാധകമാണ്

രാജ്യത്തെ വ്യവസായ സംഘടനകളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അവർ വ്യവസായ മേഖലയെ സർക്കാർ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ടു പോകുന്നത് അവിദഗ്ധ തൊഴിലിനും പ്രാധാനൃം നല്കുന്ന വിധം തൊഴിൽ രംഗത്ത് പുനർ വിചിന്തനം വേണമെന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു

സൌദി അറേബ്യ യു എ

എ വേർതിർട്ക്ക്ൽ കിറ്റ് അഗാപ്പെ ചിത്രാ മാഗ്ന ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കും

എ ഐസൊലേഷൻ കിറ്റ് എന്ന പേരിലാണ് ഇത് വിപണിയിൽ എത്തുന്നത്

വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശ്രീചിത്രാ മെഡിക്കൽ സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റുമാണ്ട് ഡോ

കിറ് പുറത്തിറക്കുന്നതിന്റെ പ ഔദ്യോഗിക പ്രഖ്യാപനം ഡോ

തിരുവനന്തപുരത്ത് കെ

സി

ആസ്ഥാനത്ത് രാജീവ്ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്ത്രോട്ടന്റ്ബന്ധിച്ച് സമഭാവന പ്രതിജ്ഞാ ചടങ്ങ് കെ

സി സി പ്ലസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു

സ്വർണവില കുറഞ്ഞു